സംഘടന പ്രഖ്യാപിച്ചു രോഗ പിക്ർച്ച് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ലോക്ട്രാഷ്ട്രങ്ങളോട് യു

ഫെഡറൽ തത്വങ്ങൾ പാലിച്ച് യോജിച്ച് പ്രവർത്തിക്കാൻ പുതുച്ചേരി ലെഫ്റ്റനന്റ് ഗവർണറോടും മുഖൃമന്ത്രിയോടും മദ്രാസ് ഹൈക്കോടതി

ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഹിമാചൽപ്രദേശിലെ ധരംശാലയിൽ ഇന്ന് തുടക്കം

വിസ നിരോധനം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും വിശദാംശങ്ങളുമായി ലിഖിത

അട്ടിയിന്തര് കാരണങ്ങളാൽ ഇന്തൃയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്ലീദ്ദേശ് പൌരന്മാർക്ക് അടുത്തുള്ള ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയവുമായി ബന്ധപ്പെടാം

അനിവാര്യമല്ലാത്ത എല്ലാ വിദേശയാത്രകളും ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരൻമാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്ര ആരോഗ്യ കുടുംബ ക്ഷേമ സ്പെഷ്യൽ സെക്രട്ടറി സഞ്ജീവ കുമാറാണ് ഇക്കാര്യം അറിയിച്ചത് ഇന്നലെ ഡൽഹിയിൽ വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെയും മന്ത്രിമാരുടെയും യോഗം ചേർന്നിരുന്നു

രാജ്യമെമ്പാടും കർശന ജാഗ്രത പാലിക്കണം

നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ വൈറസ് ലോക രാജ്യങ്ങളിലേക്ക് പടരുന്ന സാഹചര്യത്തിലാണിത് ഒരാഴ്ചയ്ക്കിടെ നിരവധി രാജ്യങ്ങളിലേക്ക് വൈറസ് പടർന്നതായി ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദ്നോം ഗബ്രിയേസിസ് ജനീവയിൽ പറഞ്ഞു വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലയിലേക്ക് പടരാൻ സാധ്യതയുണ്ട് പുതിയൊരു വൈറസ് ലോകമാകെ ഈ രീതിയിൽ പടരുന്നത് ആദ്യമാണെന്നും അദ്നോം ഗബ്രിയേസിസ് പറഞ്ഞു

കൊറോണ വൈറസ് ബാധ ഒരു പകർച്ചവ്യാധിയായി പ്രഖ്യാപിക്കുന്നത് എല്ലായിടത്തും എല്ലാവരും പ്രവർത്തന സജ്ജരാകാനുള്ള ആഹ്വാനമാണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു

അതിനിടെ കൊറോണ രോഗം സ്ഥിരീകരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രയോധികയുടെ ആരോഗൃനില അതീവഗുരുതരമായി തൂട്ട്രുന്നു

കഴിഞ്ഞ ആഴ്ച പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചരൃത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഈ മാസം എട്ട് മുതൽ വളർത്തു പക്ഷികളെയും കോഴികളെയും അധികൃതർ കൊല്ലാൻ തുടങ്ങിയിരുന്നു

പ്രദേശത്ത് നിന്ന് നശിപ്പിച്ച മുട്ടകൾക്ക് അഞ്ച് രൂപ വീതവും നഷ്ടപരിഹാരം നൽകും

ചർച്ച വേണമെന്ന പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദിന്റെ ആവശ്യം പരിഗണിക്കുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ളാദ് ജോഷി അറിയിച്ചു

ഫെഡറൽ തത്വങ്ങൾ പാലിച്ച് യോജിച്ച് പ്രവർത്തിക്കാൻ ലെഫ്റ്റനന്റ് ഗവർണർ കിരൺ ബേദിയോടും മുഖൃമന്ത്രി വി

ഗവർണറുടെ അധികാരങ്ങൾ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു നിയമസഭാംഗമാണ് കോടതിയെ സമീപിച്ചത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ ഗവർണർക്ക് അധികാരമില്ലെന്നായിരുന്നു വിഷയം പരിഗണിച്ച ജസ്റ്റിസ് മഹാദേവന്റെ ഉത്തരവ്

എസ് സുപ്രീം കോടതിയുടെ അംഗീകാരം

ആയിരക്കണക്കിന് അഭയാർത്ഥിക്കളാണ് മെക്സിക്കോ അതിർത്തിയിൽ കഴിയുന്നത് പട്ടിണിയിൽ നിന്നും രക്ഷ നേടാനായാണ് ഇവർ മധ്യൂട്ടൽമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പലായനം നടത്തുന്നത്

ചൈനയിൽ നിന്നുള്ള യാത്രക്കാർക്ക് നേരത്തെ തന്നെ വിസ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു

സി സി ഐ മെഡിക്കൽ സംഘം പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കരുത് ഹസ്തദാനം ഒഴിവാക്കണം സെൽഫി എടുക്കുമ്പോൾ പരിചയമില്ലാത്തവരുടെ ഫോണുകൾ കൈകാര്യം ചെയ്യരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിന മത്സരം ഇന്ന് ധരംശാലയിൽ ആരംഭിക്കാനിരിക്കെയാണ് നിർദ്ദേശം വൃക്തിശുചിത്വം സംബന്ധിച്ച ലഘുലേഖയും ക്രിക്കറ്റ് താരങ്ങൾക്ക് നൽകിയിട്ടുണ്ട്

കൊറിയയുടെ സിങ്ങ്ചി ഹ്യൂനാണ് സിന്ധുവിന്റെ അടുത്ത മത്സരത്തിലെ എതിരാളി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മുംബൈയിലെ പ്രത്യേക കോടതി ജഡ്ജി പി

റാണാ കപൂർ മുൻകയ്യെടുത്ത്പ്പിവിധ സ്ഥാപനങ്ങൾക്കായി അനുവദിച്ച മുപ്പതിനായിർപ്പ് കോടി രൂപയിൽ ഇരുപതിനായിരം കോടിയും കിട്ടാക്കടമായി മാറിയെന്ന് എൻഫോഴ്സ്മെന്റ് അധികൃതർ കോടതിയിൽ അറിയിച്ചു സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന സ്ഥാപനങ്ങൾക്കാണ് തുക അനുവദിച്ചത്

സി യിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് അടുത്തമാസം നാലിന് നടക്കും ഏപ്രിൽ എട്ടിനാണ് വോട്ടെണ്ണൽ

സിയിൽ ഉള്ളത്

ജെ പി ഒറ്റയ്ക്കാണ് ബി

പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ തീരുമാനമായിട്ടില്ലെനന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രഞ്ജിത്ത് കുമാർദാസ് പറഞ്ഞു